അഞ്ച് സംസ്ഥാനങ്ങളിൽ അടുത്ത് നടക്കുന്ന നിയമസഭാതെരഞ്ഞെടുപ്പിൽ വിവിപാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം ആകാശവാണിക്കു നല്കിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു കള്ളവോട്ടും വോട്ടർപട്ടികയിലെ കൃത്രിമവും തടയാൻ കമ്മീഷൻ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പു വേളകളിൽ സമൂഹ ്രമാധ്യമങ്ങളുടെ ദുരുപയോഗം തടയാനും കമ്മീഷൻ ശക്തമായി ഇടപെടുമെന്ന് റാവത്ത് അറിയിച്ചു

അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ സന്ദർശനം

ഇതു സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുകയാണ്

ശബരിമല പ്രശ്നത്തിൽ ഗവൺമെന്റ് നിലപാട് വിശദീകരിക്കാൻ ജില്ലാകേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു

അഞ്ചാം ദിനമായ ഇന്ന് യാത്ര ആലങ്കോട്ടു നിന്നാരംഭിക്കും സുരേഷ് ഗോപി എം പി ഉദ്ഘാടനം ചെയ്യും ഇന്ന് വൈകീട്ട് കഴക്കൂട്ടത്താണ് സമാപനം നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാത്രയുടെ സമാപന പരിപാടിയിൽ ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധരറാവു ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ലലലലലലലലലലലല ശബരിമല വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ റിവ്യൂ ഹർജി നൽകാൻ ദേവസ്വംബോർഡിനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച് ഇടുക്കി ആമയാറ്റിൽ ഉപവാസ സമരം തുടങ്ങി ബി ജെപി സംസ്ഥാന സെക്രട്ടറി എ കെ നസീർ ഉദ്ഘാടനം ചെയ്തു

ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് മുംബൈ ആസാദ് മൈതാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ആവശ്യപ്പെട്ടു കോയമ്പത്തൂരിൽ അയ്യപ്പസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു

വിശ്വാസം സംരക്ഷിക്കണമെന്ന നിലപാടാണ് എസ് എൻ ഡി പി യോഗത്തിനെന്നും നിയമത്തെ വെല്ലുവിളിച്ച് സമരത്തിനിറങ്ങില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി നിലപാട് വൃക്തമാക്കാൻ ബുധനാഴ്ച നേതൃയോഗം ചേരുമെന്നും വെള്ളാപ്പള്ളി അറിയിച്ചു

യോഗ്യത നേടിയവരുടെ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും ദേവസ്ഥംബോർഡ് ആസ്ഥാനത്ത് ഹൈക്കോടതി നിരീക്ഷക്ന്റെ സാന്നിധ്യത്തി ലായിരുന്നു ഇന്റർവ്യൂ

പരിഹാരമായി

പാർലമെന്റും നിയമസഭകളും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ശബരിമലയിലെ പ്രസ്ത്രീപ്രവേശന വിധിയും മുത്തലാഖുമായി ബന്ധപ്പെട്ട വിവാഹമോചനത്തെ ക്രിമിനൽകുറ്റമാക്കുന്ന ഓർഡിനൻസും വിശ്വാസത്തിലും മതജീവിതത്തിലും കോടതികളുടെ അന്യായമായ ഇടപെടലാണെന്നും അവർ കുറ്റപ്പെടുത്തി സ്വർഗ്ഗര്തിയും വിവാഹിതരുടെ അവിഹിത ബന്ധങ്ങളും കുറ്റകരമല്ലാതാക്കിയ വിധികൾ രാജ്യത്തിന്റെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്കെ തിരാണെന്നും യോഗം വിലയിരുത്തി മുസ്ലീംസംഘടനാ നേതൃയോഗത്തിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു

ക്യാപ്റ്റൻ അജയ്റെഡിയാണ് മാൻ ഓഫ് ദ മാച്ച് ബെയ്ജിങ്ങിൽ ചൈനക്കെതിരായ സൌഹൃദ ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് സമനില റാങ്കിങ്ങിൽ ഏറെ മുന്നിൽ നില്ക്കുന്ന ചൈനയോട് സമനില പുലർത്താനായത് ഇന്ത്യക്ക് നേട്ടമായി

കോഴിക്കോട്ട് സമസ്ത ശരീ അത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതത്തെ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി വൃാഖൃാനിക്ക ണമെന്നും വിശ്വാസത്തെ ചോദ്യം ചെയ് താൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സുന്നിപള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന തിൽ തീരുമാനമെടുക്കാൻ ആരും മുതിരേണ്ടെന്നും നബിയുടെ കാലത്തുതന്നെ സ്ത്രീപ്രവേശനം തടഞ്ഞിട്ടുണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു

മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും

ഐ എം എ ഹാളിൽ പരിപാടിയുടെ ഭാഗമായി വൈറ്റ്കെയ്ൻ റാലി സെമിനാർ എന്നിവയുമുണ്ടാകും

രണ്ട് വീടുകൾ തകർന്നു ആളപായമില്ല പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മുറിഞ്ഞകല്ല് ഭാഗത്ത് വെള്ളം കയറി ഗ്താഗതം തടസ്സപ്പെട്ടു ജീവിതത്തിന്റെ പല മേഖലകളിലും സമൂഹം കർമ്മത്തിൽനിന്ന് പിൻവാങ്ങുന്നത് ഭയം ജനിപ്പിക്കുന്നതായി പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻനായർ പറഞ്ഞു മലപ്പുറത്ത് ഡോക്ടർ പി കെ വാര്യർക്ക് കർമ്മശ്രേഷ്ഠാ പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു എം

ലലലലലലലലലലലല പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് ഇടുക്കി ജില്ലയിൽ നടപടി ആരംഭിച്ചു സ്വന്തം ഭൂമിയിൽ വീടുവെക്കാൻ ഗുണഭോക്താക്കൾക്ക് നാല് ലക്ഷം രൂപ ധനസഹായം നല്കും

അമ്പലങ്ങളും പള്ളികളും അടക്കം ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്രഗവർണ്മെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്വദേശ് ദർശൻ

പ്രധാന തിരുനാൾ ദിവസമായ നാളെ പുലർച്ചെയാണ് ശയനപ്രദക്ഷിണം തിരുനാൾ ആഘോഷത്തോട നുബന്ധിച്ച് മംഗലാപുരം കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് ഇന്നും നാളെയും മാഹി സ്റ്റേഷനിൽ ഒരു മിനിറ്റ് നിർത്തും

വാഹനങ്ങൾ തടയുകയോ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ലെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു

മൂന്ന് പേർ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടിൽ പാകം ചെയ്ത മത്സ്യക്കറി കഴിച്ച കൂട്ടായി അരയന്റെപുരയ്ക്കൽ കുഞ്ഞാവയാണ് ഇന്നലെ ഉച്ചുയോടെ മരിച്ചത്

കാട്ടാന ബൈക്ക് തകർത്തു

ഉച്ചകഴിഞ്ഞ് പൊതു സമ്മേളനം മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും